ഇന്ന് സർജിക്കൽ സ്ട്രൈക്കിന്റെ രണ്ടാം വാർഷികത്തോടനു ബന്ധിച്ച് രാജ്യത്ത് പരാക്രം പർവ് ആചരണം ഇന്ന് ആരംഭിക്കും വിനോദസഞ്ചാരമേഖലയിൽ ഉത്തരവാദിത്വ ടൂറിസത്തിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്ന തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാക് അക്രഡിറ്റേഷൻ ലഭിക്കാത്ത കോളേജുകൾക്ക് പുതിയ പ്രോഗ്രാമുകൾ അനുവദിക്കുന്നത് സർവകലാ ശാലകൾ പുനപരിശോധിക്കണമെന്ന് മന്ത്രി ഡോക്ടർ കെ

ജലീൽ പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണം ഇന്ന് ആരംഭിക്കും ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കലാശപോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും ങ്ങ ൽ ശബരിമല സ്ത്രീപ്രവേശനം സംബന്ധിച്ച കേസിൽ സൂപ്രീം കോടതി ഇന്ന് വിധി പറയും

ഹർജിയിൽ എട്ടുദിവസം വാദം കേട്ടശേഷം കഴിഞ്ഞമാസം ഒന്നിനാണ് വിധി പറയാൻ മാറ്റിയത്

എത്രയും പെട്ടെന്ന് അയോദ്ധ്യ തർക്കത്തിന്റെ അന്തിമവിധിക്ക് ഇത് വഴിവെക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു സുപ്രീംകോടതി വിധിയിലെ എല്ലാവശവും അംഗീകരിക്കണമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു

സുപ്രീംകോടതി വിധി നിരാശാജനകവും ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതുമാണെന്ന് മുസ്തിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

സുപ്രീം കോടതി നീതിയുടെ പക്ഷത്ത് തന്നെ നിൽക്കുമെന്ന് പ്രത്യാശിക്കുന്നതായും മജീദ് കോഴിക്കോട്ട് പറഞ്ഞു നിയന്ത്രണരേഖയിലെ ഭീകരരുടെ ക്യാമ്പുകൾ ക്കെതിരെ രാജ്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്ത് പരാക്രം പർവ് ആചരണം ഇന്ന് ആരംഭിക്കും

രാജ്യരക്ഷാമന്ത്രി നിർമല സീതാരാമൻ വൈകിട്ട് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ നടക്കുന്ന പരാക്രം പർവ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും

സായുധ സേനയുടെ ധീരത പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളും ഫോട്ടോകളും പരിപാടിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്

ആചരിക്കും ് ് ് ് ് ് ് അഴിമതി വിരുദ്ധസമിതിയായ ലോക്പാലിന്റെ അധ്യക്ഷനെയും അംഗങ്ങളെയും നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എട്ടംഗ അന്വേഷണസമിതി രൂപീകരിച്ചു സുപ്രീം കോടതി മുൻ ജഡ്ജി രഞ്ജനപ്രകാശ് ദേശായി സമിതിക്ക് നേതൃത്വം നൽകും പ്രസാർഭാരതി ചെയർമാൻ എ സൂര്യപ്രകാശ് എസ് ബി ഐ മുൻ മേധാവി അരുന്ധതി ഭട്ടാചാര്യ ഐ

ഒ മുൻ മേധാവി ഡോക്ടർ എ

കിരൺകുമാർ തുടങ്ങിയവർ സമിതിയിൽ അംഗങ്ങളാണ്

ഇതോടെ കേന്ദ്ര ഗവൺമെന്റിനോ കാവൽ മന്ത്രിസഭ ക്കോ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനാവില്ലെന്ന് കൃാബിനറ്റ് സെക്രട്ടറിക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കുമയച്ച കത്തിൽ കമ്മീഷൻ അറിയിച്ചു നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴായിരുന്നു മാതൃകാപെരുമാറ്റചട്ടം നിലവിൽ വന്നത്

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാര മേഖലയിൽ ഉത്തരവാദിത്വ ടൂറിസത്തിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ടൂറിസം മേഖലയിലടക്കം പാരിസ്ഥിതിക സവിശേഷതകളും ജനതാൽപര്യങ്ങളും മുൻനിർത്തി നടത്തുന്ന പുനർനിർമ്മാണമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലബാറിലെ നാടൻ കലകളുടെയും പ്രൈതൃകങ്ങളുടെയും പ്രത്യേകത സഞ്ചാരികളിൽ എത്തിക്കാൻ ഉടൻ പദ്ധതികൾ നടപ്പാക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു

പ്രളയദൂരിതങ്ങൾ മറികടന്ന് കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളും ഹോട്ടലുകളും വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞതായി കേന്ദ്ര ടൂറിസം സഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞു ന്യൂഡൽഹിയിൽ ദേശീയ ടൂറിസം പുരസ്കാരങ്ങൾ അന്താരാഷ്ട്ര വിനോദസഞ്ചാരദിനത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സമഗ്ര ടൂറിസം വികസനം ഉത്തരവാദ ടൂറിസം വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട ഹ്രസ്ഥചിത്രം മികച്ച വിദേശഭാഷാ ടൂറിസം പ്രസിദ്ധീകരണം എന്നിവയ്ക്കാണ് കേരളം പുരസ്കാരം നേടിയത്

കോളേജുകൾക്ക് പുതിയ പ്രോഗ്രാമുകൾ അനുവദിക്കുന്നത് സർവകലാശാലകൾ പുനപരിശോധിക്കണമെന്ന് മന്ത്രി ഡോക്ടർ കെ

സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു മന്ത്രി

എച്ച്

സർവകലാശാലകളുടെ പ്രവർത്തനം വിലയിരുത്താനും കാര്യക്ഷമത ഉറപ്പാക്കാനും മൂന്നു മാസത്തി ലൊരിക്കൽ അവലോകനയോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിലെ സർവകലാശാലകൾ നടത്തുന്ന കോഴ്സുകൾ പരസ്പരം അംഗീകരിക്കുന്ന സ്ഥിതി യുണ്ടാവണം സ്വാശ്രയ സ്ഥാപനങ്ങളിലെ ഫീസ് പുതുക്കുന്നതിനും ഏകീകരിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്നും ജലീൽ അറിയിച്ചു പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണം ഇന്ന് ആരംഭിക്കും മന്ത്രിമാരായ വി

സുനിൽകുമാർ പി തിലോത്തമൻ കടകംപള്ളി സുരേന്ദ്രൻ എന്നി വരുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് മില്ലുടമകൾ ഈ ഉറപ്പുനൽകിയത്

എം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം

സംസ്ഥാന സെക്രട്ടേറിയറ്റും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാന കമ്മറ്റിയും ചേരും

കെ ശശി എം

എക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും

സമീപഗ്രാമങ്ങളും പ്രളയത്തോടെ ഇല്ലാതായേനെ എന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ആലപ്പുഴയിൽ പറഞ്ഞു സ്വന്തം ജീവൻ പണയം വെച്ച് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ രക്ഷാപ്രവർത്തനം കേരള ചരിത്രത്തിൽ മനുഷ്യത്തിന്റെ പ്രകാശ ഗോപുരമാണെന്നും അദ്ദേഹം പറഞ്ഞു ് ് ് ് ് ് ് ബ്രൂവറി അഴിമതി സംബന്ധിച്ച് അമ്പേഷണം വേണമെന്ന് യു ഡി എഫ് ഏകോപനസമിതി ആവശ്യപ്പെട്ടു ബിയർ നിർമ്മാണത്തിന് മൂന്നു ബ്രൂവറികളും ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം ഉല്പാദിപ്പിക്കുന്ന ഡിസ്റ്റിലറിയും ആരംഭിക്കാൻ രഹസ്യമായി ് അനുമതി നൽകിയതിൽ കോടികളുടെ അഴിമതിയുണ്ടെന്ന് നേതാക്കൾ തിരുവനന്തപുരത്ത് പറഞ്ഞു

ഇന്ന് ഏറ്റുമുട്ടും വൈകിട്ട് അഞ്ചിന് ദുബായിലാണ് മത്സരം ഏഴാം തവണയും ജേതാക്കളാകാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മൂന്നാംതവണ ഏഷ്യാകപ്പ് ഫൈനലിലെത്തുന്ന ബംഗ്ലാദേശ് ആദ്യ കിരീടമാണ് ലക്ഷ്യമിടുന്നത്

പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ എം

സൂര്യ സ്വർണ്ണം നേടി

ഇന്തോനേഷ്യയെ ഗോൾരഹിത സമനിലയിൽ തളച്ച് സി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായാണ് ഇന്ത്യയുടെ കാർട്ടർ പ്രവേശം

പരിക്കേറ്റ ഇന്ത്യൻ നാവികൻ കമാന്റർ അഭിലാഷ് ടോമിയെ അടുത്ത ആഴ്ച ആദ്യം രാജ്യത്ത് തിരിച്ചെത്തിക്കുമെന്ന് രാജ്യരക്ഷാവക്താവ് കൊച്ചിയിൽ അറിയിച്ചു നാവികസേനയുടെ ഐ എൻ എസ് സത്പുര കപ്പൽ ഇന്ന് വൈകിട്ടോടെ അഭിലാഷ്ടോമി ചികിത്സയിൽ കഴിയുന്ന ആംസ്റ്റർഡാം ദ്വീപിൽ എത്തുമെന്നും വക്താവ് പറഞ്ഞു അതിനിടെ അഭിലാഷ് ടോമിയുമായി ടെലഫോണിൽ സംസാരി ച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ആരോഗൃസ്ഥിതി ആരാഞ്ഞു ആധുനീകരണത്തിലൂടെ ഉല്പാദനക്ഷമൃത വർധിപ്പിച്ച് വ്യവസായങ്ങൾ ലാഭകരമാക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു ചാത്തന്നൂർ സ്പിന്നിംഗ് മിൽ നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

ഓൺലൈൻ ഔഷധ വ്യാപാരത്തിന് അനുമതി നൽകുന്ന കരട് വിജ്ഞാപനം കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ ഷോപ്പുകൾ ഇന്ന് രാജ്യവ്യാപകമായി അടച്ചിടും ഔഷധ വ്യാപാരികളുടെ അഖിലേന്ത്യാസംഘടനയായ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് കെമിസ്റ്റ് ആന്റ് ഡ്രഗ്ഗിസ്റ്റാണ് ഒരു ദിവസത്തെ കടയടപ്പിന് ആഹാനം ചെയ്തത്

കനാലിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് വിദഗ്ദ്ധ പരിശോധനയ്ക്കായി കനാൽ ഡിസൈൻ വിഭാഗത്തിന്റെ സഹായം തേടി ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കാരണം കനാലിന് കേടുവന്നതായി സംശയിക്കുന്നു ബാരാപ്പോളിൽ നാലുമാസമായി വൈദ്യുതോല്പാദനം നിർത്തി വെച്ചിരിക്കുകയാണ്

യാത്രക്ക് വിമാനകമ്പനികൾ ഉയർന്ന നിരക്ക് ഈടാക്കുന്നത് അവസാനിപ്പിക്കാൻ ട കേന്ദ്രഗവൺമെന്റ് സത്വര നടപടി സ്വീകരിക്കണമെന്ന് മലബാർ ചേംബറിന്റെയും കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റിയുടെയും സംയുക്തയോഗം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ മറ്റ് വിമാനത്താവളത്തിലെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വിമാന കമ്പനികൾ കോഴിക്കോട് നിന്ന് യാത്രയ്ക്ക് അമിത നിരക്കാണ് ഈടാക്കുന്നതെന്ന് കോഴിക്കോട്ട് ചേർന്ന യോഗം കുറ്റപ്പെടുത്തി

സംഘപരിവാർ സംഘടനകൾ ഇന്ന് പകൽ ഹർത്താൽ ഒആചരിക്കുന്നു കഴിഞ്ഞദിവസം പ്രദേശത്തുണ്ടായ ഡി വൈ എഫ് ഐ ആർ എസ് എസ് സംഘർഷത്തിൽ സംഭവവുമായി ബന്ധമില്ലാത്തവരെ ്പൊലീസ് അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ചാണ് ഹർത്താൽ

വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ച വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ഇന്ന് തുറക്കും കലക്ടർ യു

ജോസ് വിളിച്ചുചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം

തീവ്രത വർദ്ധിപ്പിച്ചതെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യസമിതി അംഗം പ്രൊഫസർ പി

പത്തനംതിട്ട റാന്നിയിൽ കോൺഗ്രസ്സിന്റെ നേതൃത്ധത്തിൽ നടന്ന ഉപവാസസമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പ്രകടിപ്പിക്കുന്നതിന് ലോക നടപ്പുദിനമായ നാളെ വൈകിട്ട് തൊടുപുഴയിൽ ബിഗ് സല്യൂട്ട് പരിപാടി സംഘടിപ്പിക്കും

പ്രചാരണം നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി

അന്ധവിദ്യാലയത്തിന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് സ്കൂൾ വാൻ നൽകും മന്ത്രി പ്രൊഫസർ സി